മിഷൻ ഇന്ദ്രധനുഷിന്റെ രണ്ടാംഘട്ടത്തിന് ഇന്ന് തുടക്കമാകും

ആറ് ദിവസത്തെ സന്ദർശനത്തിനായി സ്വീഡൻ രാജാവും രാജ്ഞിയും ഇന്ന് ന്യൂഡൽഹിയിൽ

ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം

രണ്ട് വയസുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും എട്ട് തരം രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് ഡിഫ്തീരിയ വില്ലൻചുമ പോളിയോ ടെറ്റനസ് ക്ഷയം അഞ്ചാംപനി മെനിഞ്ചൈറ്റിസ് മഞ്ഞപ്പിത്തം എന്നീരോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് മിഷൻ ഇന്ദ്രധനുഷിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ജപ്പാൻ ജ്ചരത്തിനെതിരെയുള്ള വാക്സിനും നൽകുന്നുണ്ട്

ഈമാസം മുതൽ അടുത്ത വർഷം മാർച്ച് വരെയാണ് പദ്ധതി നടപ്പാക്കുക

ഡൽഹിയിലെ ഔദ്യോഗിക പരിപാടികളെ കൂടാതെ ആറ് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനിടെ രാജദമ്പതികൂൾ ്മുംബൈയും ഉത്തരാഖണ്ഡും സന്ദർശിക്കും

സന്ദർശ്മന്ത്തിനിടെ ദമ്പതികൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി ന്രേന്ദ്രമോദിയുമായും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പരസ്പര താൽപ്പര്യമുള്ള ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച നടത്തും നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കാനും സാധ്യതയുണ്ട്

ഇരു രാജ്യങ്ങളിലെയും സൈനിക സഹകരണം മെച്ചപ്പെടുത്താനും സൈനിക ശേഷി മെച്ചപ്പെടുത്താനും വിവിധ ആശയങ്ങൾ പരസ്പരം കൈമാറാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് സൈനികാഭ്യാസം ഇരു രാജ്യങ്ങളിലെയും സേനകൾ തമ്മിലുള്ള സഹകരണത്തിന് പുത്തൻ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു നഗര ഗ്രാമ മേഖലകളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള തന്ത്രങ്ങളും അഭ്യാസ പ്രകടനങ്ങളും മിത്രാശക്തിയിൽ നടക്കും

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്

ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് ചക്രധർപ്പൂരിലും ബഹരഗോറയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സിംദെഗയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും

കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടും നേതൃത്വവും ലോകത്താകെ അംഗീകരിക്കപ്പെടുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെ ചെറുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിരുന്നു

എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വിളിച്ചു ചേർത്ത കാലാവസ്ഥാ സമ്മേളനത്തിൽ ശ്രീ

മറ്റ് രാജ്യങ്ങളും ഇത്തരത്തിൽ പ്രതിജ്ഞാബദ്ധമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അന്താരാഷ്ട്ര സോളാർ സഖ്യത്തിലൂടെ സൌരോർജശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ്

കേസുകൾ പിൻവലിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മുംബൈയിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു ്മുംബൈയിലെ ഒരു മെട്രോ പദ്ധതിയും നിർത്തിവയ്ക്കില്ലെന്നും അദ്ദേഹ് അറിയിച്ചു മെട്രോ കാർ ഷെഡ് നിർമ്മാണത്തിനായി മരങ്ങൾ മുറിച്ചുക്ക്കുന്ന് നടപടി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉടൻ ഉദ്ദവ് താക്കറെ ത്രടഞ്ഞിരുന്നു

കർത്താർപൂർ തീർത്ഥാടകരെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപിച്ച സേവാ കേന്ദ്രങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി അമരീന്ദർ സിങ് നിർദ്ദേശം നൽകി

കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി കെ

കൊല്ലപ്പെട്ട യുവതിയുടെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നും ശ്രീ

തീരദേശ ജില്ലകളായ തിരുവള്ളൂർ തൂത്തുക്കുടി രാമനാഥപുരം ജില്ലകളീലും ചെങ്കൽപ്പേട്ട് കാഞ്ചീപുരം കഡലൂർ ചെന്നൈ എന്നിവിട്ടങ്ങളിലും പുതുച്ചേരിയിലും ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഇന്നലെ ചെന്നൈയിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ശക്തമായ മഴ പെയ്തു

അറബിക്കടലിൽ ന്യൂനമർദ്ദം തുടരുന്നതിനാൽ ലക്ഷദ്വീപിച്ചെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപംകൊണ്ട ന്യൂനമർദത്തെ തുടർന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബീച്ചുകളിലേക്കുള്ള വിനോദ സഞ്ചാരം ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു

അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണമിശ്രിതവും സ്വർണവുമാണ് മസ്കറ്റിൽ നിന്നെത്തിയ മൂന്ന് യാത്രക്കാരിൽനിന്ന് എയർ കസ്റ്റംസ് ഇൻ്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത്

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്

ഇരു ടീമുകളും രണ്ടു ഗോൾ വീതം അടിച്ചാണ് സമനിലയിൽ പിരിഞ്ഞത്